കാറ്റിന്റെ വേഗം കുറഞ്ഞതായി കാലാവസ്ഥാ നീരീക്ഷണവകുപ്പ് ്റ് ശബരിമല വിഷയത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരത്തിൽ നിന്ന് ബി ജെ പി പിൻമാറണമെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ മുഖ്യമന്ത്രി ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിളള മുൻധനമന്ത്രി പി ചിദംബരത്തിന്റെ മകൻ കാർത്തി

ഓഹരിവിപണിയിൽ വൻതകർച്ചു രൂപയുടെ മൂല്യം ഇന്നും ഇടിഞ്ഞു ്

ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷയിൽ മരങ്ങൾ കടപുഴകുകയും വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറാകുകയും ചെയ്തു ആൾനാശമുണ്ടായതായി റിപ്പോർട്ടില്ല സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കനത്ത മഴയാണ് ലഭിക്കുന്നത് സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തിലധികംപേരെ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ മാറ്റിപാർപ്പിച്ചിരുന്നു

പ്രതിഷേധത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ബി ജെ പി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു

സമരത്തെ ബി ജെപി ഹൈജാക്ക് ചെയ്തുവെന്നും കടകംപളളി പറഞ്ഞു ബി ജെ പിയുടെയും ആർ എസ് എസ്സിന്റെയും നേതാക്കളാണ് ശബരിമലയിൽ സ്ത്രീപ്രവേശന ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു അയ്യപ്പന്റെ പേരിൽ അന്യായസമരം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സമരം ജനങ്ങൾക്കെതിരാണെന്ന് മന്ത്രി പറഞ്ഞു അയ്യപ്പഭക്തരുടെ താത്പര്യം സംരക്ഷിക്കുക യാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും കടകംപളളി വൃക്തമാക്കി

സ്ത്രീകൾ വരുന്നതനുസരിച്ച് ശബരിമലയിൽ ഒരുക്കങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സമരം കാര്യമാക്കുന്നില്ലെന്നും ജനങ്ങൾ അയ്യപ്പനൊപ്പ മാണെന്നും പത്മകുമാർ അറിയിച്ചു

വിശ്വാസത്തെ രക്ഷിക്കാൻ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം പന്തളത്ത് ആവശ്യപ്പെട്ടു വിശ്വാസികളെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുകയാണെന്ന് ഗ്രൂീധരൻപിളള കുറ്റപ്പെടുത്തി

യാത്രയ്ക്ക് കിട്ടിയ ജനപിന്തുണ കണ്ടിട്ടാണ് ദേവസംബോർഡിന്റെ ചുവടുമാറ്റമെന്നും സി പി ഐ എമ്മിന് കോൺഗ്രസ് ഒത്താശ ചെയ്യുകയാണെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് കുറ്റപ്പെടുത്തി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നതായി സാമൂഹ്യ പ്രവർത്തകൻ സ്വാമി അഗ്നിവേശ് അഭിപ്രായപ്പെട്ടു

സംസ്ഥാനത്ത് കോൺഗ്രസ് കൈക്കൊണ്ട നിലപാട് തിരുത്താൻ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഗവണ്മെന്റ് തീരുമാനം അഭിനന്ദനീയമെന്നും സ്വാമി പറഞ്ഞു

ഡി എയുടെ ശബരിമല സംരക്ഷണ യാത്ര രണ്ടാം ദിവസമായ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടങ്ങി രാവിലെ നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് വൈകീട്ട് കായംകുളത്ത് സ്മാപിക്കും ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പന്തളം അനന്തപുരി ലോംങ് മാർച്ചിനും ഇന്ന് തുടക്കമായി

സ്ത്രീ പ്രവേശന വിധിയിലെ യാഥാർത്ഥ്യങ്ങൾ അടിത്തട്ടിൽ എത്തിക്കാനാവശ്യമായ നടപടികൾ യോഗം തീരുമാനിക്കും

കേസിൽ കാർത്തി ചിദംബരത്തെ നേരത്തെ എൻഫോഴ് സ് മെന്റ് ഡയറക് ട്രേറ്റ് ചോദ്യാ ചെയ്തിരുന്നു

ആദ്യമായാണ് രൂപയുടെ മൂല്യം ഇത്രയും കുറയുന്നത്

നാളെ രാവിലെ പത്തിന് വോട്ടെണ്ണൽ ആരംഭിക്കും

്ഡിസ്റ്റിലറി ബ്രൂവറി അഴിമതി അന്വേഷിക്കുക പെട്രോൾ ഡീസൽ വിലവർദ്ധനയിലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കളളക്കളി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശൃങ്ങളുന്നയിച്ചാണ് ധർണ്ണ സായാഹ്നധർണ്ണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നിർവൃഹിക്കും യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കും

രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം

വിരാട് കോഹ്ലി നായകനായ ടീമിൽ മാറ്റം വരുത്താൻ ഇടയില്ലെന്നാണ് റിപ്പോർട്ട്

കണ്ണൂർ പൊലീസ് പരേഡ് ഗ്രൌണ്ടിൽ ജില്ലാസ്പോർട്സ് കൌൺസിൽ പ്രസിഡണ്ട് ഒ

പെൻഷൻകാരുമാണ് പങ്കെടുക്കുന്നത് ലലലലലലലലലലലല ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് ഇന്ന് വൈകീട്ട് കൊല്ലം പീരങ്കി മൈതാനത്ത് ആരംഭിക്കും

മുരളീധരൻ എം

ഉദ്ഘാടനം ചെയ്യും പുരുഷ വനിതാ വിഭാഗങ്ങളിലായി പത്ത് ടീമുകൾ പങ്കെടുക്കും

കേരള ബാങ്ക് രൂപവത്കരണത്തെ എതിർക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ഗവൺമെന്റ് നയങ്ങൾ തിരുത്തണമെന്ന് അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ല ബാങ്കുകളുടെ ജനറൽബോഡി അംഗീകാരം നൽകിയാൽ മാത്രമേ കേരള ബാങ്ക് യാഥാർഥ്യമാകൂ അഞ്ച് ജില്ല ബാങ്കുകൾ യു ഡി

മലപ്പുറം വയനാട് കാസർകോട് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ജനറൽബോഡി ചേരുമ്പോൾ കേരള ബാങ്ക് ആവശ്യമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുക കേരള ബാങ്ക് നിലവിൽ വരുന്നതോടെ നവതലമുറ ബാങ്കുകൾക്ക് ബാങ്കുകൾ പിടിച്ചടക്കാൻ ഗവൺമെന്റ് നടത്തുന്ന നീക്കമാണ് ഇതിന് പിന്നിലെന്നും മജീദ് ആരോപിച്ചു ചലച്ചിത്ര സംവിധായകൻ പി സുകു മേനോൻ അന്തരിച്ചു

കളഭമഴ നമ്മുടെ നാട് തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അച്ഛൻ തന്ന ഭാര്യ എന്ന ചിത്രമാണ് അവസാനമായി സംവിധാനം ചെയ്തിരുന്നത്

സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം ചെന്നൈയിൽ നടക്കും

ആന്തൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡണ്ടാണ് വിസ്മയപാർക്ക് ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്

വാസുദേവന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു

ഇന്ന് പുലർച്ച യോടെയായിരുന്നു അപകടം ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതാണ് അപകടകാരണമെന്നും കേസെടുത്തായും പൊലീസ് അറിയിച്ചു

പത്തനംതിട്ട ചെറുകോൽ സ്വദേശിനി മണിയമ്മക്കെതിരെയാണ് ആറന്മുള പോലീസ് കേസെടുത്തത്

തിരക്കഥ തിരിച്ചുകിട്ടണമെന്നു മാവശ്യപ്പെട്ടാണ് ഹർജി

ഹർജി കോടതി ഇന്ന് പരിഗണിച്ചേക്കും ലലലലലലലലലലലല നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി എക്സ്പ്രസ് ട്രെയിൻ സ്വതന്ത്ര വണ്ടിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര റെയിൽവെ മന്ത്രി പിയൂഷ് അറിയിച്ചതായി മഞ്ഞളാംകുഴി ഗോയൽ അലി എം എൽ എ പറഞ്ഞു മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകളുടെ അപര്യാപ്തത കാണിച്ച് റെയിൽവെമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം മലപ്പുറത്ത് അറിയിച്ചു

ആയുഷ്മാൻ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുക ക്ഷേമപെൻഷ നുകൾ പുനഃസ്ഥാപിക്കുക കെ എസ് ആർ ടി സിയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക പ്രളയക്കെടുതി നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശൃങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം